ജീവന്റെ വിലയുള്ള ജാഗ്രത എന്ന മുദ്രാവാക്യമുയർത്തി ബ്രേക്ക് ദ ചെയിൻ ക്യാംപയിൻ മൂന്നാം ഘട്ടത്തിലേയ്ക്കെന്നും മുഖ്യമന്ത്രി

രാമായണ മാസാചരണത്തിന് തുടക്കമായി ത കെയർഹോം പദ്ധതിയുടെ രണ്ടാംഘട്ടം മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ബ്രേക്ക് ദ ചെയിൻ ക്യാംപയിൻ ജീവന്റെ വിലയുളള ജാഗത മുദ്രാവാക്യമുയർത്തി എന്ന മൂന്നാംഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു ഇതോടൊപ്പം ജനങ്ങൾക്ക് ഒരു പ്രധാന ജാഗ്രതാ നിർദേശം കൂടി മുഖ്യമന്ത്രി നൽകി

കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി വോയ്സ് രുമ മാർക്കറ്റുകൾ തൊഴിലിടങ്ങൾ വാഹനങ്ങൾ ആശുപത്രികൾ പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് ആരിൽ നിന്നും ആർക്കും രോഗം പകരാനിടയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത്കൊണ്ട് ഒരാളിൽ നിന്നും മിനിമം രണ്ടു മീറ്റർ അകലം പാലിച്ച് സ്വയം സുരക്ഷിത വലയം തീർക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം

നാം പുലർത്തുന്ന ജാഗ്രത കൊണ്ടാണ് മരണ നിരക്ക് വളരെ കുറച്ചു നിർത്താൻ കഴിയുന്നത് ഈ ജാഗ്രതയ്ക്ക് നമ്മുടെ ജീവന്റെ വിലയുണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ലെന്നും ജാഗ്രത പുലർത്തിയാൽ വ്യാപനം പ്രതിരോധിക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി ദേദ കോവിഡ് വ്യാപനകാലത്ത് തദ്ദേശവകുപ്പ് മുഖേന കൂടുതൽ ആരോഗ്യവളണ്ടിയർമാരെ കണ്ടെത്തി പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ

കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പൂർത്തീകരിച്ച വിവിധ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫ്രൻസ് വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കോവിഡ് സമ്പർക്കവ്യാപനം നാലാംഘട്ടത്തിലേക്ക് കടക്കുന്നത് തടയാൻ അതീവജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി പറഞ്ഞു രുര സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിവേഗം വർധിക്കുന്നു

ഒമ്പത് ആരോഗ്യ പ്രവർത്തകരും രോഗം സ്ഥിരീകരിച്ചവരിൽ പെടുന്നു

ഏഴു പേരുടെ ഉറവിടം വ്യക്തമല്ല

കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ കാസർകോട് ജില്ലാ പ്രതിനിധി പി

ആലുവ ചെല്ലാനം കീഴുമാട് പഞ്ചായത്തുകളിലാണ് രോഗബാധ കൂടുതൽ

കോഴിക്കോട് കോർപ്പറേഷൻ വടകര തൂണേരി നാദാപുരം മേഖലകളിൽ നടത്തിയ പ്രത്യേകം ആന്റിജൻപരിശോധനയിലാണ് കൂടുതൽ പേർക്ക് കോവിഡ് കണ്ടെത്തിയത് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലെ ആൾകൂട്ടവും കർശനമായി നിയന്ത്രിക്കുമെന്ന് അധികൃതർ അറിയിച്ചു രദര ത്യശൂർ ജില്ലയിൽ കുന്നംകുളം നഗരസഭയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളായ ആറ് വാർഡുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി

കുന്നംകുളം മേഖലയിൽ കോവിഡ് രോഗബാധാ വ്യാപനമുണ്ടായ സാഹചര്യത്തിൽ സെക്കൻഡറി സമ്പർക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്കായി നടത്തിയ ആന്റിജൻ പരിശോധനാഫലവും നെഗറ്റീവായി

മത്സ്യക്കച്ചവടക്കാരിൽ നിന്നും കോവിഡ് ബാധിച്ചതായി സംശയിക്കുന്ന മൂന്നു പേരെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ കൊല്ലം പ്രതിനിധി നീരജ് ലാൽ

പണമില്ല എന്ന കാരണത്താൽ കോവിഡ് പ്രതിരോധം മുടങ്ങാൻ പാടില്ലെന്നും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജസ്വലതയോടെ മുന്നോട്ടു പോകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുദ രണ്ടുമാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം അവസാനം വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മെയ് ജൂൺ മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുന്നത്

കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് ഒരു ലക്ഷത്തി പതിനായിരത്തിലേറെ വിദ്യാർത്ഥികൾ പരീക്ഷയെഴുതും

പരീക്ഷാഭവന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരീക്ഷാഫലം ലഭിക്കും രേര ഇന്ന് കർക്കടകം ഒന്ന് രാമായണ മാസാരംഭം വിശ്വാസത്തിന്റയും ജീവിതചര്യയുടെയും കൂടിചേരലാണ് മലയാളിക്ക് രാമായണമാസം

ആണ്ട് അറുതി കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങത്തിന്റെ വരവായി ഓണത്തിന്റെയും കോവിഡ് മഹാവ്യാധി മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളി ഉയർത്തുന്ന സമയത്താണ് ഈ വർഷത്തെ രാമായണ മാസാചരണം കർക്കടക മാസത്തിലെ രാമായണ പാരായണം നല്ല ഫലങ്ങൾ നേടിത്തരുമെന്നാണ് വിശ്വാസം രുമ പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമാണത്തിനായി സഹകരണ വകുപ്പ് നടപ്പിലാക്കിയ കെയർ ഹോം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിക്കും

രുമ സംസ്ഥാനത്തെ ആദ്യ ആധുനിക റൈസ്മിൽ പദ്ധതി പാലക്കാട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യും

ദേശീയ പാതയോട് ചേർന്ന കണ്ണമ്പ്രയിലാണ് മിൽ സ്ഥാപിക്കുന്നത് ദേദ കോവിഡ് പശ്ചാത്തലത്തിൽ സപ്ലൈകോ ഓൺലൈൻ ഭക്ഷ്യ വിതരണ സംവിധാനം ഓഗസ്റ്റോടെ സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കും സപ്ലൈകോ വഴി ലഭ്യമാകുന്ന ആപ്പുകൾ വഴി ബന്ധപ്പെട്ടാൽ ഭക്ഷ്യ വസ്തുക്കൾ വീടുകളിൽ എത്തിക്കുന്ന സംവിധാനമാണിത് സപ്പൈകോ ആസ്ഥാനത്തും എറണാകുളത്തുമാണ് ഈ സംവിധാനം ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത് രുമ പ്രശസ്ത ഹിപ്നോട്ടിസ്റ്റും എഴുത്തുകാരനുമായ ജോൺസൺ ഐരൂർ നിര്യാതനായി മനഃശാസ്ത്രജ്ഞനും യുക്തിവാദിയുമായിരുന്ന പ്രൊഫ

കോവൂരിനൊപ്പം ദിവ്യത്ഭുത അനാവരണ പരിപാടിയുമായി ഭാരതപര്യടനം നടത്തിയ ജോൺസൺ ഐരൂർ ആർ

മലയത്തുമായി ചേർന്ന് മെന്റാരമ എന്ന പേരിൽ സ്റ്റേജ് ഹിപ്നോട്ടിക് പ്രകടനങ്ങൾ കേരളത്തിലുടനീളം നടത്തിയിട്ടുണ്ട് സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് നിലമ്പൂരിൽ നടക്കും

മാനന്തവാടി ന്യൂമാൻസ് കോളേജ് ബിരുദ വിദ്യാർഥിയായിരുന്നു രേര സ്വർണക്കടത്ത് കേസിൽ അറസ്റ്റിലായ എം

കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യം തടയുന്ന പ്രത്യേക കോടതിയാണ് റിമാന്റ് ചെയ്തത് പ്രതികളെ ആലുവയിലെ കോവിഡ് കെയർ സെന്ററിലേക്ക് മാറ്റി രുദ ഇടുക്കി ജില്ലയിലെ അടിമാലി പീരുമേട് മുരിക്കാശേരി നെടുങ്കണ്ടം കാളിയാർ പെരുവന്താനം പോലീസ് സ്റ്റേഷനുകൾ ശിശു സൌഹാർദ പോലീസ് സ്റ്റേഷനുകളായി പ്രഖ്യാപിച്ചു സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബഹ്റ ഓൺലൈനിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത് ഇടുക്കി വണ്ണപ്പുറത്ത് എ

എം കവർച്ച ശ്രമം നടത്തിയ രണ്ടു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു